ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ യാത്ര തിരിക്കും

അഫഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം

സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിലെ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നു ന്ന് ഉറപ്പ് വരുത്താൻ ശ്രദ്ധാപൂർവ്വമാണ് കേന്ദ്രഗവൺമെന്റ് പദ്ധതി ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പൌരൻമാർ ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാണ് സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ പൌരന്മാരിൽ മാത്രമായി ഒതുങ്ങില്ലെന്ന് ഗവൺമെന്റ് ഉറപ്പ് വരുത്തും പൊതുസേവന കേന്ദ്രങ്ങളിലെ മാറ്റങ്ങളിലൂടെ ഇന്ത്യ ശക്തിയാർജ്ജിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉപഭോക്തൃ ബില്ലുകൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ബാങ്കിംഗ് സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ സാധാരണ ജനങ്ങളുടെ ആനുകൂല്യങ്ങൾക്കു വേ ിയുള്ള ടെലി മെഡിസിൻ എന്നിവ രാജ്യത്തെ ര ് ലക്ഷത്തിലധികം ഗ്രാമ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പൊതുസേവന കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയാതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

കഴിഞ്ഞു നാല് വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഗണ്യമായ തോതിൽ വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും ഒരു ദിവസം മുഴുവൻ നീളുന്ന കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ ഗവർണർമാരും പങ്കെടുക്കും

ഉത്തർപ്രദേശിലെ ദാൻ കൌറിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി ന്യ്യേന്ദ്മോദി നടത്തിയ സംവാദത്തിൽ സംബന്ധിക്കുകയിയിരുന്നു ശ്രീ രവിശങ്കർ പ്രസാദ് ഡിജിറ്റൽ ഇന്തൃ പദ്ധതി ഉപുഭ്യോക്താക്കൾ പങ്കു വച്ച അനുഭവങ്ങൾ ആവേശകരമാണെന്നും അദ്ദേഹം പറഞ്ഞു

വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള കോൺഗ്രസ്സ് നേതാവ് പ്രൊഫസർ സെയ്ഫുദ്ദീൻ സോസ് നിരവധി സാമാജികർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു

പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ ന്നു ലഭിച്ച വിവരമനുസരിച്ചാണ് ജില്ലാ റിസർവ് ഗാർഡിന്റേയും പ്രത്യേക ദൌത്യ സേനയുടേയും സംയുക്ത സംഘം തിരച്ചിൽ നടത്തിയതെന്ന് പോലീസ് സൂപ്ര ് അഭിഷേക് മീന പറഞ്ഞു സുരക്ഷാസേനയുമായു ായ സൂര്ഘട്ടനത്തിൽ നക്സലുകൾ ഇവർക്കു നേരെ വെടിയുതിർത്തിരുന്നു

എസ് ടി നടപ്പാക്കിയതുമൂലം നഷ്ടത്തിലാവുന്ന സ്ഥാപനങ്ങളുടെ സഹായത്തിനായി രൂപീകൃതമായ കൺസ്യൂമർ വെൽഫെയർ ിൽ കേന്ദ്രവും സംസ്ഥാനവും തുല്യ പങ്കാളിത്തം വഹിക്കും ഫ ഉപഭോക്താക്കൾക്ക് ജി

ഉപഭോക്താവ് തിരിച്ചറിയാതെ ചുമത്തപ്പെടുന്ന തുകയും ഈ ിലേക്കാണ് നിക്ഷേപിക്കപ്പെടുക

ടി നിയമത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം ഭേദഗതി വരുത്തി കൊള്ളലാഭം തടയൽ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനങ്ങൾക്കാണ് ഇത് ബാധകം

രാജ്യത്ത് ഇത്തരം ആചാരപരമായ ചടങ്ങുകൾ വേ ന്നൂ വയ്ക്കുന്ന ആദ്യ ഗവർണറാണ് കല്യാൺ സിങ്

പദ്ധതി കൃത്യമായും സുതാര്യമായും നടപ്പാക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് നോഡൽ ഓഫീസറെയും നിയമിച്ചിട്ടു ്

കഴിഞ്ഞ ദിവസം കാശ്മീർ സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങാണ് പാകിസ്ഥാൻ അഭയാർത്ഥികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ പാകിസ്ഥാനിൽ നിന്നുമെത്തിയ കുടുംബങ്ങളാണ് കാശ്മീർ താഴ്വരയിൽ പലയിടത്തായി താമസിക്കുന്നത്

ഗ്രീസ് സുരിനാം കൃൂബ എന്നീ രാഷ്ട്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് കേന്ദ്ര ഉരുക്കു വ്യവസായ സഹമന്ത്രി വിഷ്ണു ദേശായിയും പാർലമെന്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘവും രാഷ്ട്രപതിയെ അനുഗമിക്കും ഗ്രീസിലെ ഏഥൻസിൽ യുദ്ധ വീര്ൻമാരുടെ സ്മാരകത്തിൽ റീത്ത് സമർപ്പിക്കുന്ന രാഷ്ട്രപതി ക്വൈതൃക് കേന്ദ്രങ്ങൾ സന്ദർശിക്കും

ചൊവ്വാഴ്ച സുരിനാം സന്ദർശിക്കുന്ന ശ്രീ കോവിന്ദ് സുരിനാം പ്രസിഡന്റ് ഡിസൈർ ഡിലാനോ ബ്യൂട്ടെറെസുമായി ചർച്ച നടത്തും

ഇന്ത്യക്കുവേ ി രവീന്ദ്ര ജഡേജ നാലും ഉമേഷ് യാദവ് മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി

ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന അഗ്നി സൂര്രക്ഷ സേനയും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്

ആയിരത്തിലേറേ പേർ ഭവനരഹിതരായി ത്രിപുരയിൽ സ്ഥിതി മെച്ചപ്പെട്ടുവരുന്നതായും ഭൂരിഭാഗം നദികളിലും ജലനിരപ്പ് കുറഞ്ഞതായും മുഖ്യമന്ത്രി ബിപ്തബ് കുമാർ ദേബ് പറഞ്ഞു

ദുരിതാശ്വാസപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രദേശത്തേക്ക് ദുരന്തനിവാരണ സേനയെ നിയോഗിച്ചു

ര ു ദിവസം കൂടി ത്രിപുരയിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽ സംസ്ഥാനമായ മണിപ്പൂരിലെ ഇംഫാലിലും സമീപ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു

ആസമിലെ പ്രളയക്കെടുതി ഒരുലക്ഷത്തി എഴുപതിനായിരത്തോളം പേരെ ബാധിച്ചതായാണ് റിപ്പോർട്ട്

ദേശീയ സ്ര്സ്ഥാന്ന ദുരന്തനിവാരണ സേനകൾ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തന്ങ്ങൾ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ്

എസിലെ ഹോം ലാൻഡ് സുരക്ഷാ വിഭാഗമാണ് ഇക്കാര്യം വൃക്തമാക്കിയത്

വിസ കയറ്റുമതി സംബന്ധമായ ച്ചില ആനുകൂലൃങ്ങൾ തുടർന്നും നൽകൽ സ്റ്റീലിനും അലുമിന്നിയ്ത്തീനുമേർപ്പെടുത്തിയ തീരുവ ചില മെഡിക്കൽ ഉപകരണങ്ങളൂടെ തുക തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക്യെന്ന് മന്ത്രി അറിയിച്ചു